ഇളവ് വരുത്തി കേന്ദ്ര ഗവൺമെന്റ് ചരിത്രപരമായ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പാകിസ്ഥാൻ എക്കാലവും ഇന്ത്യൻ ദേശീയ നേതൃത്വത്തെ വിലകുറച്ചാണ് കണ്ടതെന്ന് വ്യോമസേനാ മേധാവി എയർചീഫ് മാർഷൽ ബി

ഇ സിഗരറ്റ് നിരോധിക്കുന്ന ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം

മംഗോളിയയും ഭീകരതയെ നേരിടാൻ ആഗോളതലത്തിലുള്ള പ്രവർത്തനം വേണമെന്നും ആവശ്യം

ലോക പുരുഷ ബോക്സിംഗിൽ ഇന്ത്യയുടെ അമിത് പാൻഗൽ ഫൈനലിൽ

ആഭ്യന്തര കമ്പനികൾക്കും പുതിയ ആഭ്യന്തര ഉത്പാദന കമ്പനികൾക്കും കോർപറേറ്റ് നികുതി കുറയ്ക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു

കോർപറേറ്റ് സാമൂഹ്യ ഉത്തവാദിത്ത ചെലവിടലിന്റെ പരിധി വർദ്ധിപ്പിക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്

ഈ നടപടി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് ഊർജ്ജം പകരുമെന്നും കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേയ്ക്ക് ആക്ടർഷിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ഇന്ത്യയെ ഒരു വലിയ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ മോദി ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

മുംബൈയിൽ ഇന്തോ അമേരിക്കൻ ചേംമ്പർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കവേയാണ് മന്ത്രി ഇതു പറഞ്ഞത് രാജ്യത്തെ നികുതി നിരക്ക് ഇപ്പോൾ യുക്തിസഹമാണെന്നും അമേരിക്കയോടും മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളോടും താരതമ്യം ചെയ്യാനാവുന്നതാണെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു

പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചടങ്ങിൽ സംബന്ധിക്കും

ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് സിംഗപ്പൂർ ന്യൂസിലന്റ് ബംഗ്ലാദേശ് ജമൈക്ക എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും

സ്വച്ച് ഭാരത് അഭിയാൻ പദ്ധതിയ്ക്ക് നേതൃത്വം നൽകിയതിന് ബിൽ ആന്റ് മെലിന്റ ഗേറ്റ്സ് ഫൌണ്ടേഷൻ പുരസ്കാരവും ശ്രീ മോദി സ്വീകരിക്കും

എസ് കോൺഗ്രസിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ അമേരിക്കയിലുടനീളമുളള ഇന്തോ അമേരിക്കൻ വംശജരെ ഒരുമിച്ച് ചേർക്കുന്നതിനുളള അവസരമാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും അമേരിക്കൻ പൊതുജന സഭയിലെ ആദ്യ ഹിന്ദു വനിതയുമായ തുൾസി ഗബ്ബാർഡ് പറഞ്ഞു

ഇലക്ട്രോണിക് സിഗരറ്റിന്റെ ഉത്പാദനം വിതരണം വിൽപന എന്നിവ നിരോധിക്കാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത്

ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കണ്ടാണ് ഇ സിഗരറ്റ് നിരോധിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത്

നേരത്തെ മംഗോളിയൻ പ്രസിഡന്റ് ശ്രീ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു

അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേർന്ന മംഗോളിയയുടെ നടപടി ഈ രംഗത്ത് ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായക്ടര്മാണ് ഒരു ദശാബ്ദത്തിന് ശേഷമുള്ള മംഗോളിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനം വളരെ പ്രത്യേകതയുള്ളതാണെന്നും ശ്രീ

മംഗോളിയൻ പ്രസിഡന്റ് ഖ്ൾട്ട്മാഗിൻ ബട്ടുൾഗയുമായി പ്രതിനിധിതല ചർച്ചയൂം ഇന്ത്യൻ ഉപരാഷ്ട്രപതി നടത്തി

ഔദ്യോഗികമായി പരസ്യപ്രചാരണത്തിന് നാളെ വരെ അനുമതിയുങ്കിലും ശ്രീനാരായണ ഗുരു സമാധി പ്രമാണിച്ച് മൂന്നു മുന്നണികളും ഇന്ന് പരസ്യപ്രചാരണം അവസാനിപ്പിക്കുകയായിരുന്നു

ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻതാരം ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേശ് വോയിസ് പ്രത്യേക അന്വേഷണ സംഘവും പോലീസും ചേർന്നാണ് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്

ചിനാർ കോർപ്സ് കമാൻഡർ ലഫ്നന്റ് ജനറൽ കെ

ധില്ലനും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു

ന്യൂയോർക്കിൽ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം പാകിസ്ഥാനെ വിമർശിച്ചത്

വിധി നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് കോടതിയെ അറിയിച്ചു ഗവൺമെന്റ് ഉത്തരവ് നടപ്പാക്കാൻ ബാധൃതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കിയിരുന്നു